രാജ്യത്തെ ഡിജിറ്റൽ വിഭജനം ്കുറച്ചു കൊണ്ടുവരാൻ സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ പ്ദ്ധതി തുടരേണ്ടതുണ്ടെന്ന് രാഷ്ട്രപതി രാം നാഥ് ക്കോപ്പിന്ദ് ഈ വർഷത്തെ ഡിജിറ്റൽ ഇന്ത്യ പുരസ്ക്കാരങ്ങൾ ശ്രീ കോവിന്ദ് വിതരണം ചെയ്തു

കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്ര സിംഗ് തോമർ പീയൂഷ് ഗോയൽ സോം പ്രകാശ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു

കർഷകർ ഉന്നയിക്കുന്ന പ്രസക്തമായ എല്ലാ വിഷയങ്ങൾക്കും യുക്തിസഹമായ പരിഹാരം കണ്ടെത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രം ആവർത്തിച്ചു

കർഷകർ നമ്മുടെ അന്നദാതാക്കളാണ് അവരോട് അങ്ങേയറ്റം ബഹുമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷകരുടെ താൽപര്യങ്ങൾ മാനിക്കുന്നതാണ് പുതിയ കാർഷിക നിയമങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു

നിലവിലുള്ള കുറഞ്ഞ താങ്ങ് വില നിരക്കിൽ ഖാരിഫ് വിളകൾ സംഭരിക്കുന്നത് സർക്കാർ തുടരുകയാണ്

ഡിജിറ്റൽ സേവനങ്ങളുടെ പ്രയോജനം ഇനിയും ലഭ്യമായിട്ടില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങളുണ്ടെന്ന് രാഷ്ട്രപതി പറിഞ്ഞു്

രാജ്യത്തെ ഡിജിറ്റൽ സൌകര്യങ്ങൾ അടുത്തിടെ ശക്തിപ്രാപിച്ചതിനാൽ കൊറോണ മഹാമാരി ഉയർത്തിയ വെല്ലുവിളിയെ പല മേഖലകളിലും ഒരു അവസരമാക്കി മാറ്റാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ആരംഭിച്ച ആരോഗ്യ സേതു ഇ ഓഫീസ് വീഡിയോ കോൺഫറൻസ് സേവനങ്ങൾ മഹാമാരി ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ സഹായിച്ചു രാജ്യത്തെ ഏറ്റവും വിദൂരമായ പ്രദേശങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും പരിവർത്തനം ചെയ്യാൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തണ മെന്നും ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു സർക്കാർ സേവനങ്ങൾ ഡിജിറ്റൽ ആക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ കീഴിൽ ദേശീയ ഇൻഫോർമാറ്റിക്സ് കേന്ദ്രമാണ് ഡിജിറ്റൽ ഇന്ത്യ പുരസ്ക്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്

സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി കൊറോണ വ്യാപനം ചെറുക്കുന്നതിന് ആവശ്യമെങ്കിൽ രാത്രികാല കർഫ്യൂ ഉൾപ്പെടെ പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു

ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസിന്റെ വ്യാപനം കണക്കിലെടുത്താണ് തീരുമാനം

അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം റിട്ടേണുകൾ സമർപ്പിക്കാൻ ആദായനികുതി വകുപ്പ് അഭ്യർത്ഥിച്ചു

പ്രതിരോധ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ നടപടി സഹായകമാകുമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു

കൊല്ലപ്പെട്ടവരെ തിരിച്ചറിയാനായിട്ടില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു

ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ അദ്ധ്യക്ഷ സ്ഥാനത്തേക്ക് രാവിലെയും ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഉച്ച കഴിഞ്ഞുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്

എഫ് പ്രസിഡന്റുമാർ അധികാരത്തിലേറി